സംഭവത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവ്

അവശേഷിക്കുന്ന മൂന്ന്ഘട്ട വോട്ടെടുപ്പുകളുടെ പ്രചാരണം ഊർജിതം

ആവേശ തിമിർപ്പിൽ തിരുവനന്തപുരം

കൂടുതൽ വിവരങ്ങളുമായി അമ്നിൽകുമാർ

ഫാക്ടറിയിൽ കുടുങ്ങിപ്പോയ പലരും ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടതിനുശേഷമാണ് മരിച്ചത് പലരുടെയും നില അതീവ ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം ഫാക്ടറിയിൽ കൂടുതൽ പേർ അകപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ദേശീയ ദുരന്ത പ്രതികരണ സേന തെരച്ചിൽ തുടരുകയാണ് സംഭവത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ്തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉത്തരവിട്ടു ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പൂനെ ഐസറിലെ ശാസ്ത്രജ്ഞരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം പ്രകൃതി വിഭവങ്ങളുടെ മാപ്പിംഗ് കാർഷിക ജൈവസാങ്കേതിക വിദൃ എന്നിവയിൽ പ്രകൃതി സൌഹൃദ ഊർജ്ജ രൂപങ്ങളുടെ ഉപയോഗം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് ശാസ്ത്രജ്ഞർ പ്രധാനമന്ത്രിക്കു മുമ്പാകെ അവതരണം നടത്തി മരുന്നുകളുടെ മേൽ രോഗാണുക്കൾ നേടിവരുന്ന പ്രതിരോധം കാലാവസ്ഥാ തുടങ്ങിയ പഠനം വിഷയങ്ങളിലെ അതിനൂതന സാങ്കേതിക വിദ്യകളും സംഘം ശ്രീ മോദിക്കുമുന്നിൽ അവതരിപ്പിച്ചു

നേരത്തെ പൂനെയിലെ ഐസർ ക്യാമ്പസ് സന്ദർശിച്ച പ്രധാനമന്ത്രി ഗവേഷകരുമായും വിദ്യാർത്ഥികളുമായും ആശയവിനിമയം നടത്തിയിരുന്നു

ഒഡീഷ ഗവർണർ ഗണേഷി ലാൽ മുഖ്യമന്ത്രി നവീൻ പട്നായിക്ക് വിവിധ കേന്ദ്രമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഒഡീഷയിലെ ഖുർദ ജില്ലയിലെ ബ്രൂണൈയ് കുന്നുകളുടെ താഴ്വരയിലാണ് പദ്ധതി നിലവിൽ വർീക്ക്

ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ൂപ്പുപ്പ ൽ നടന്ന വിപ്തവം ഒന്നാം സ്വാതന്ത്ര്യ സമരമായാണ് വിശേഷിപ്പിക്കപ്പെട്ടു്ന്നത്

ആദായ നികുതി നിരക്കുകളെ കാലോചിതമായി പരിഷ്കരിക്കുന്നതടക്കമുള്ള നടപടികൾ ഇതിൽ ഉൾപ്പെടുന്നു പ്രത്യേക ഇളവുകൾ ഒഴിവാക്കി രാജ്യത്തെ നികുതി സംവിധാനത്തെ കൂടുതൽ ലളിതമാക്കാൻ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതായും ധനമന്ത്രി ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സമ്പദ്വൃവസ്ഥയ്ക്ക് ഉൌർജ്ജം പകരുന്ന നിരവധി നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്

കൌൺസിലാണ് നിശ്ചയിക്കേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി

വിവിധ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ് കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും സ്മൃതി ഇറാനിയും വിവിധ റാലികളെ ഇന്ന് അഭിസംബോധന ചെയ്യും ജാർഖണ്ഡ് മുക്തിമോർച്ച വർക്കിംഗ് പ്രസിഡന്റ് ഹ്ലോർദ്ദ് സോറൻ ജാർഖണ്ഡ് വികാസ് മോർച്ച ചീഫ് ബാബുലാൽ മര്ർദ്ദി എ

യു അധ്യക്ഷൻ സുദേഷ് മഹ്തോ എന്നിവരും ഇന്ന് പിവിധ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും

അനാരോഗ്യം മൂലവും ജീവനു ഭീഷണിയുള്ളതിനാലും ചോക്സിക്ക് ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കില്ലെന്ന് അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു ചോക്സിയെ സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറ്ക്ടറേറ്റിന്റെ ഹർജി കോടതി ഇനി പരിഗണിക്കും സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ചാൽ ചോക്സിയുടെ ആസ്തികൾ എൻഫോഴ്സ്മെന്റിന് കണ്ടു കെട്ടാനാകും

രാജധാനി എഫ് എം റെയിൻബോ നിലയങ്ങളിലും തത്സമയ വിവരണം കേൾക്കാനാകും

മ്യാൻമാർ കരസേനാ മേധാവിയുമായും ഉപമേധാവിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇരുരാജ്യങ്ങളിലേയും സേനകൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ മേധാവികൾ ചർച്ച ചെയ്യും രൊഹിങ്ക്യൻ അഭയാർത്ഥികളെ മ്യാൻമാറിലേക്ക് മടക്കി അയക്കുന്നത് അടക്കമുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമാകും

ആളപായം ഉണ്ടായതായി റിപ്പോർട്ടില്ല ഇന്നലെ ദക്ഷിണ ഇസ്രയേൽ ലക്ഷ്യമിട്ട് പാലസ്തീനിയൻ തീവ്രവാദികൾ റോക്കറ്റാക്രമണങ്ങൾ നടത്തിയിരുന്നു

ദിവസങ്ങളായി തുടർന്നു വരുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് ഇന്ന് രാത്രിയോടെ സമാപനമാകും

എസ്സിക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു

ഇതിൽ അഞ്ചുലക്ഷം പേരെങ്കിലും പരീക്ഷ എഴുതുമെന്നാണ് പിഎസ്സി കരുതുന്നത്